ലക്ഷൃത്തോടെയുള്ള സ്വാമിത്വപദ്ധതി പ്രോപ്പർട്ടി കാർഡുകളുടെ വിതരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് തുടക്കം കുറിക്കും

നവംബർ മാസങ്ങൾ ് നിർണ്ണായകമെന്ന് മുഖ്യമന്ത്രി

പോരാട്ടം ജോക്കോവിച്ചും നദാലും നേർക്കുനേർ

ഗ്രാമീണ ഇന്ത്യയിൽ പരിവർത്തനാത്മക സ്വാധീനം ചെലുത്തുകയും ആളുകളെ ശാക്തികരിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു ലക്ഷ്ത്തോളം പ്രോപ്പർട്ടി ഉടമകൾക്ക് അവരുടെ മൊബൈൽ ഫ്മോണുകളിൽ ലഭ്യമാകുന്ന എസ് എം എസ് ലിങ്ക് വഴി പ്പോപ്പർട്ടി കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാൻ സാധിക്കും

ഉത്തർപ്രദേശ് ഹരിയാന മഹാരാഷ്ട്ര മ്യൂപ്രദേശ് ഉത്തരാഖണ്ഡ് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുത്ത ഗ്രാമങ്ങളിലാണ് പദ്ധതി നിലവിൽ വരുക വായ്പയും മറ്റ് സാമ്പത്തിക ആനുകൂലൃങ്ങളും സ്വീകരിക്കുന്നതിന് ഗ്രാമീണരുടെ സാമ്പത്തിക ആസ്തിയായി സ്വത്ത് ഉപയോഗിക്കുന്നതിന് ഈ നീക്കം വഴിയൊരുക്കും ചടങ്ങിൽ പ്രധാനമന്ത്രി ചില ഗുണഭോക്താക്കളുമായി സംവദിക്കും

നിലക്കടല ശുദ്ധീകരിച്ച പഞ്ചസാര ഗോതമ്പ് ബസ്മതി അരി എന്നിവയുടെ കയറ്റുമതിയാണ് വർദ്ധിച്ചത്

അടുത്തിടെ കാർഷിക വ്യവസായ അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിന് ഒരു ലക്ഷം കോടി രൂപയുടെ അഗ്രി ഇൻഫ്രാ ഫണ്ടും കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു

പൃത്തൂല്ക്ഷത്തിലധികം പേർ ഇതിനകം മരണമടഞ്ഞു

ഈ രണ്ട് മാസങ്ങളിൽ കൂടുതൽ ഫ്ലിപ്പദമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുണ്മെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

മാസ്ക് ധരിക്കുക എന്നതാണ് നിലവിൽ രോഗവ്യാപനം തടയാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം ഒപ്പം നിരന്തരം കൈകൾ ശുചിയാക്കി ബ്രേയ്ക്ക് ദ ചെയ്ൻ ക്യാംപെയ്ൻ ശക്തമാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു പ്രതിരോധ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ ജില്ലകളിൽ ഗസറ്റഡ് ഓഫീസർമാരെ സെക്ടറൽ മജിസ്ട്രേറ്റുമാരായി നിയോഗിച്ചിട്ടുണ്ട് കടകളും സ്ഥാപനങ്ങളും ഉൾപ്പെടെ ജനങ്ങൾ കൂട്ടംകൂടുന്ന സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും നടപ്പിലാക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ഇവർക്കാണ്

അതിൽ പത്തു ശതമാനം പേരിൽ ഗുരുതരമായ രീതിയിൽ ബുദ്ധിമുട്ടുകൾ തുടരുന്നുണ്ട്

ടി സെക്രട്ടറിയുമായ എം ശിവശങ്കറിനെ ഇന്നലെ കസ്റ്റംസ് ചോദ്യം ചെയ്തത് പതിനൊന്ന് മണിക്കൂറോളം

ചൊവ്വാഴ്ച വീണ്ടും ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

സംയുക്ത സേന നടത്തിയ തെരച്ചിലിൽ പുൽവാമ ജില്ലയിലെ ദാദുര മേഖലയിലും കുൽഗാം ജില്ലയിലെ ചിനിഗാം ഗ്രാമത്തിലുമാണ് ഏറ്റുമുട്ടലുണ്ടായത് കൊല്ലപ്പെട്ട ഒരാൾ പാകിസ്ഥാൻ പൌരനാണ് വൻ തോതിലുള്ള ആയുധശേഖരവും കണ്ടെത്തിയിട്ടുണ്ട്

ഐ ആർ രജിസ്റ്റർ ചെയ്ത് ഫോറൻസിക് വിദഗ്ധരടങ്ങുന്ന സംഘം ഉടൻ തന്നെ അന്വേഷണം ഏറ്റെടുക്കുമെന്ന് സിബിഐ വൃത്തങ്ങൾ അറിയിച്ചു ഹാഥ്രസ് സംഭവത്തിൽ ഉത്തർ പ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സിബിഐ അന്വേഷണം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കേന്ദ്ര ആഭ്യന്തര മന്ത്രി ആമീത് ്ഷാ ബിജെപി അധ്യക്ഷൻ ജെ

നദ്ദ മറ്റ് മുതിർന്ന നേത്രാക്ക്ൾ തുടങ്ങിയവർ പാർട്ടി ആസ്ഥാനത്ത് ചേർന്ന യ്യോഗ്ത്തിൽ പങ്കെടുത്തു

ഫൈനലിൽ ഇന്ന് ലോക ഒന്നാം നമ്പർ താരമായ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചും രണ്ടാം നമ്പർ താരമായ സ്പെയിനിന്റെ റാഫേൽ നദാലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആകാംക്ഷയോടെയാണ് ടെന്നീസ് ലോകം കാത്തിരിക്കുന്നത്

വനിതാ സിംഗിൾസിൽ ഇന്നലെ പോളിഷ് കൌമാര താരം ഈഗ സ്വിയാറ്റെക് കന്നി കിരീടം സ്വന്തമാക്കി

ഇരുപത് ഗ്രാൻസ്റ്റാം കിരീടമെന്ന റോജർ ഫെഡററിന്റെ റിക്കോർഡിന് ഒപ്പമെത്താനായി റാഫേൽ നദാലും പതിനെട്ടാം കിരീടം നേടാനായി നൊവാക് ജോക്കോവിച്ചും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ടെന്നീസ് ആരാധകർ കാത്തിരിക്കു ന്നത് സ്പ്ന പോരാട്ടമാണ് പതിമൂന്നാം ഫ്രഞ്ച് ഓപ്പൺ കിരീടം ലക്ഷ്യമിട്ടാണ് കളിമൺ കോർട്ടിലെ താരമായ നദാൽ ഇന്നിറങ്ങുന്നത്

അതേസമയം ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ പോളിഷ് കൌമാരതാരം ഈഗ ഷാംടെക് ചരിത്രം കുറിച്ചു അമേരിക്കയുടെ നാലാം സീഡ് സോഫിയ കെനിനെ അട്ടിമറിച്ചാണ് സീഡ് ചെയ്യപ്പെടാത്ത താരമായ ഈഗ കന്നി കിരീടം സ്വന്തമാക്കിയത്

ന്യൂസ് ഡെസ്ക് ആകാശവാണ്ടു

ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ ലോക ആറാം നമ്പർ ജൂനിയർ താരം റഷ്യയുടെ അലക്സി സരാനയെയാണ് നിഹാൽ തോൽപ്പിച്ചത്

ടൈറ്റിൽ ജയത്തോടെ പതിനാറുകാരനായ സരിൻ ഈ വർഷത്തെ സ്പീഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് യോഗ്യത നേടി

ബാംഗ്ലൂരിന്റെ നാലാം ജയമാണിത് ബൌളർമാരുടെ മികച്ച പ്രകടനമാണ് റോയൽ ചലഞ്ചേഴ്സിന് വിജയം സമ്മാനിച്ചത്

ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ കിങ്സ് ഇലവൻ പഞ്ചാബിനെ കൊൽക്കതത്ത നൈറ്റ് റൈഡേഴ്സ് രണ്ട് റൺസിന് തോൽപിച്ചു